എൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപ്പിറ്റൽസ് ചെന്നൈ സൂപ്പർ കിംഗ്സിനെ തോൽപ്പിച്ചു വാർത്തകൾ വിശദമായി രാജ്യത്ത് പരമാവധി ആളുകൾക്ക് വാക്സിൻ നൽകുന്നതിന് നാലുദിവസത്തെ ടീക്ക ഉത്സവ് ഇന്ന് ആരംഭിക്കും സാമൂഹ്യ പരിഷ്കർത്താവ് ജ്യോതിബ ഫുലെയുടെ ജന്മദിനമായ ഇന്നുമുതൽ ഭരണഘടനാ ശില്പി ബി

രാജ്യത്തെ കോവിഡ് സ്ഥിതി വിലയിരുത്തുന്നതിന് വ്യാഴാഴ്ച മുഖ്യമന്ത്രിമാരുമായി ആശയ വിനിമയം നടത്തവെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ടീക്ക ഉത്സവ് സംഘടിപ്പിക്കാൻ ആഹ്വാനം നൽകിയത്

വാക്സിൻ നഷ്ടപ്പെടുത്താതെ പരമാവധി ഉപയോഗപ്പെടുത്താനും ഇത് ലക്ഷ്യമിടുന്നു

വാക്സിൻ സ്വീകരിച്ച ശേഷവും കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജനപ്രതിനിധികളെ പദ്ധതിയിൽ ഉൾപ്പെടുത്താനും ക്യാമ്പുകൾ നടത്തി വാക്സിനേഷൻ ഇരട്ടിയാക്കാനും വിവിധ സംസ്ഥാനങ്ങൾ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്

കഴിഞ്ഞ നാലു ദിവസങ്ങളിലായി ഒന്നര ലക്ഷത്തോളമാണ് രാജ്യത്തെ പ്രതിദിന കോവിഡ് രോഗികളുടെ കണക്ക്

ന്യൂസ് ഡെസ്ക് ആകാശവാണി ദേദ അതിനിടെ രാജ്യത്ത് കോവിഡ് വാക്സിനേഷൻ പത്തുകോടി പിന്നിട്ടു

ദേദ സംസ്ഥാനത്ത് കോവിഡ് വാക്സിനേഷൻ ഊർജ്ജിതമാക്കാൻ തദ്ദേശതലത്തിൽ വാക്സിനേഷൻ ഡ്രൈവുമായി ആരോഗ്യവകുപ്പ് തദ്ദേശസ്വയംഭരണ വകുപ്പുമായി ചേർന്ന് വാർഡ് തലത്തിൽ വാക്സിനേഷൻ ക്യാമ്പുകൾ നടത്താനാണ് തീരുമാനം കോവിഡ് പരിശോധന വർദ്ധിപ്പിക്കാനും ചികിൽസാ സൌകര്യങ്ങൾ ശക്തിപ്പെടുത്താനും ആശുപത്രികൾക്ക് നിർദ്ദേശം നൽകി

വെള്ളിയാഴ്ച പ്രതിദിന കണക്ക് അയ്യായിരം കടന്നത് ഇന്നലെ ആറായിരം കടന്നു

ദര കോവിഡ് പ്രതിരോധത്തിന് വാക്സിനേഷൻ അനിവാര്യമാണെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളജിലെ ഇൻഫക്ഷസ് ഡിസീസസ് വിഭാഗം മേധാവി ഡോക്ടർ ഷീല മാത്യു പറഞ്ഞു

ദേദ സംസ്ഥാനത്ത് പ്രതിദിന കോവിഡ് വ്യാപനത്തിൽ വൻ വർദ്ധന

ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും വർദ്ധിച്ച് പത്ത് ശതമാനത്തിലെത്തി

എറണാകുളം ജില്ലയിൽ കോവിഡ് വ്യാപനം രൂക്ഷമായി

ബീച്ചുകളിലും മറ്റ് ടൂറിസം കേന്ദ്രങ്ങളിലും ആളുകളുടെ പ്രവേശനത്തിന് നിയന്ത്രണമേർപ്പെടുത്തും ദേദ ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട ലോകായുക്തയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ മന്ത്രി ഡോക്ടർ കെ ടി ജലീൽ രാജിവെക്കണമെന്ന ആവശ്യം സി

എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് തള്ളി ഇന്നലെ തിരുവനന്തപുരത്ത് ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമാണ് വിഷയം ചർച്ച ചെയ്തത്

ടി ജലീലിന് മന്ത്രിയായി തുടരാൻ അർഹതയില്ലെന്ന ലോകായുക്ത വിധി തള്ളി മന്ത്രിയെ സംരക്ഷിക്കാൻ സി

എം എടുത്ത തീരുമാനം ജനാധിപത്യ വാഴ്ചയോടും പൊതു സമൂഹത്തോടുമുള്ള വെല്ലുവിളിയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു

എൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപ്പിറ്റൽസ് ചെന്നൈ സൂപ്പർ കിംഗ്സിനെ ഏഴുവിക്കറ്റിന് തോൽപ്പിച്ചു

ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും ചെന്നൈ ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം ദ്ദേ പാനൂരിൽ ലീഗ് പ്രവർത്തകൻ മൻസൂർ കൊല്ലപ്പെട്ട സംഭവത്തിൽ എറണാകുളം ക്രൈംബ്രാഞ്ച് ഐ ജി ഗോപേഷ് അഗർവാൾ അന്വേഷണത്തിന് നേതൃത്വം നൽകുമെന്ന് സംസ്ഥാന പൊലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ അറിയിച്ചു കേരളത്തിനു പുറത്ത് തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുളള അദ്ദേഹം തിരിച്ചെത്തുന്നതുവരെ തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ഐ ജി ജി സ്പർജൻകുമാർ അന്വേഷണം ഏകോപിപ്പിക്കും

അന്വേഷണ സംഘത്തെ മാറ്റണമെന്ന് യു

എഫ് ആവശ്യപ്പെട്ടിരുന്നു

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്

പൂരത്തിന്റെ വരവറിയിച്ചുകൊണ്ട് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ ചേർന്ന് സംഘടിപ്പിക്കുന്ന പ്രദർശനത്തിന്റെ ഉദ്ഘാടനം ഇന്നലെ വൈകിട്ട് മന്ത്രി എസി മൊയ്തീൻ നിർവഹിച്ചു ഉദ്ഘാടനം കഴിഞ്ഞുവെങ്കിലും സ്റ്റാളുകളുടെ നിർമ്മാണം പുരോഗമിക്കുന്നതിനാൽ പ്രവേശനം വൈകും എന്നാണ് ദേവസ്വങ്ങൾ അറിയിച്ചിരിക്കുന്നത് പൂരം പ്രദർശനത്തിനുള്ള അനുമതി വൈകിയതിനാൽ തന്നെ പണികളും വൈകിയതാണ് കാരണം ഇത്തവണ സ്റ്റാളുകളുടെ എണ്ണത്തലും കുറവ് വരുത്തിയിട്ടുണ്ട്

ദ്ദേ ബംഗളുരു മംഗലാപുരം പ്രതിദിന എക്സ്പ്രസ് ട്രെയിൻ ഇന്ന് മുതൽ കണ്ണൂർ വരെ നീട്ടി

ദേദ സംസ്ഥാനത്ത് ഇന്ന് വ്യാപകമായി മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ശക്തമായ മഴയ്ക്ക് സാധ്യത കണക്കിലെടുത്ത് നാളെ ഇടുക്കിയിലും ചൊവ്വാഴ്ച ഇടുക്കിയിലും വയനാട്ടിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു

ദര ശക്തമായ കാറ്റിലും മഴയിലും തിരുവനന്തപുരം കാട്ടാക്കട വെളളറട ഭാഗത്തെ മലയോര ഗ്രാമീണ മേഖലയിൽ കനത്ത നാശനഷ്ടം

ശക്തമായ കാറ്റിൽ കുലച്ച വാഴകളടക്കം ഒടിഞ്ഞുവീണാണ് നാശനഷ്ടം ഉണ്ടായത്

ദേദ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളജിലെ കുത്ത് കേസ് പ്രതി ശിവരഞ്ജിത്തിന്റെ വീട്ടിൽനിന്ന് സർവകലാശാലയുടെ ഉത്തരക്കടലാസ് പോലീസ് പിടിച്ചെടുത്ത സംഭവത്തിൽ ഉത്തരവാദിയെന്ന് കണ്ടെത്തിയ അധ്യാപകൻ അബ്ദുൾ ലത്തീഫിനെ കേരള സർവകലാശാലയിൽ അറബിക് പ്രൊഫസറായി നിയമിക്കാൻ തീരുമാനിച്ച വിഷയത്തിൽ യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ വിശദീകരണം തേടി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അബ്ദുൾ ലത്തീഫിനെ പരീക്ഷാ ജോലികളിൽ നിന്ന് സ്ഥിരമായി ഡിബാർ ചെയ്യുകയും ശിക്ഷണ നടപടിയുടെ ഭാഗമായി ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി കോളേജിൽനിന്ന് സ്ഥലം മാറ്റുകയും ചെയ്തിരുന്നു